ം കോവിഡ് നിയന്ത്രണത്തിന് സമയബന്ധിതമായ പരിഹാര മാർഗ്ഗങ്ങൾ കണ്ടെത്തണമെന്ന് കേന്ദ്രം ശാസ്ത്ര സമൂഹത്തോട് ആവശ്യപ്പെട്ടു ം ഓപ്പറേഷൻ സാഗർ റാണിയുടെ ഭാഗമായി സംസ്ഥാനത്ത് നൂറ് ടണ്ണിലേറെ ഉപയോഗ ശൂന്യമായ മത്സ്യം നശിപ്പിച്ചു വാർത്തകൾ വിശദമായി സംസ്ഥാനത്തെ ലോക്ഡൌൺ കോവിഡ് സാഹചര്യങ്ങൾ ഇന്ന് ചേരുന്ന മന്ത്രിസഭാ യോഗം ചർച്ച ചെയ്യും കേരളത്തിൽ സാമൂഹ്യ വ്യാപനം ഉണ്ടാവാത്ത നിലയ്ക്ക് ലോക്ഡൌണിൽ ഇളവുകൾ അനുവദിക്കുന്ന കാര്യം മന്ത്രിസഭ ചർച്ച ചെയ്തേക്കുമെന്നാണ് സൂചന എന്നാൽ കേന്ദ്ര മാർഗ്ഗ നിർദ്ദേശങ്ങൾക്കൂടി പരിഗണിച്ചായിരിക്കും ഇളവുകൾ സംബന്ധിച്ച അന്തിമ തീരുമാനം

ഇന്നലെ കണ്ണൂരിലും പത്തനംതിട്ടയിലും ഓരോരുത്തർക്ക് മാത്രമാണ് രോഗം സ്ഥിരീകരിച്ചത് രണ്ട് പേരും വിദേശത്തുനിന്ന് എത്തിയവരാണ്

ഇയാളുടെ റൂട്ട്മാപ്പ് ആരോഗ്യവകുപ്പ് പുറത്തുവിട്ടു ഏപ്രിൽ രണ്ടിന് പാലക്കാട് നഗരത്തിലെ രണ്ട് സ്വകാര്യ ആശുപത്രികളിൽ ഇയാൾ ചികിത്സ തേടിയിരുന്നു ഇയാളുടെയ ഭാര്യയെയും മകനെയും ആശുപത്രിയിൽ നിരീക്ഷണത്തിലാക്കിയതായി ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു

ഇതോടെ ജില്ലയിൽ കോവിഡ് സ്ഥിരീകരിച്ച ഏഴുപേർ രോഗമുക്തരായി ആറുപേരാണ് ചികിത്സ തുടരുന്നത്

തൃശൂർ ജില്ലയിൽ ഇന്നലെ മൂന്നുപേരെക്കൂടി കോവിഡ് മാറിയതിനെത്തുടർന്ന് ആശുപത്രിയിൽനിന്ന് വിട്ടയച്ചു ഇനി രണ്ടുപേർ മാത്രമാണ് ചികിത്സയിൽ കഴിയുന്നവർ

നിലവിൽ ജില്ലയിൽ പോസിറ്റീവായി ഏഴ് കേസുകളുണ്ട് രണ്ടുപേർ രോഗം ഭേദമായി വീട്ടിലേക്ക് പോയി

അവരുടെ ആരോഗ്യനില തൃപ്തികരമാണെന്ന് അധികൃതർ അറിയിച്ചു

മൂന്നാറിലും മറയൂരിലും സമ്പൂർണ്ണ ലോക്ഡൌൺ നിലനിൽക്കുകയാണ് ചിന്നാർ ബോഡിമെട്ട് കമ്പംമെട്ട് കുമളി അതിർത്തി ചെക്ക് പോസ്റ്റുകളിലും പരിശോധന കർശനമാക്കി

രുദ കണ്ണൂരിൽ കോവിഡ് സ്ഥിരീകരിച്ച മൂര്യാട് സ്വദേശിയെ അഞ്ചരക്കണ്ടി കോവിഡ് ട്രീറ്റ്മെന്റ് സെന്ററിലേക്ക് മാറ്റി കഴിഞ്ഞ ദിവസം മരിച്ച മാഹി സ്വദേശിയ്ക്ക് രോഗബാധ എങ്ങനെയുണ്ടായി എന്നു കണ്ടെത്താൻ ശ്രമം തുടരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പ്രതിനിധി കെ ഒ ശശിധരൻ

ഒരു കൊവിഡ് പോസിറ്റീവ് കേസും റിപ്പോർട്ട് ചെയ്തിട്ടില്ല കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പ്രതിനിധി പി ജഗന്നിവാസൻ

ലോക്ഡൌണിൽ ദുരിതത്തിലായ പ്രവാസികൾക്ക് ചികിത്സ ഭക്ഷണം എന്നിവ ഗവൺമെന്റ് ഉറപ്പുവരുത്തണമെന്നും ഹർജികളിൽ ആവശ്യപ്പെടുന്നുണ്ട്

ഹർഷവർദ്ധൻ ശാസ്ത്ര സമൂഹത്തോട് ആവശ്യപ്പെട്ടു ഇപ്പോഴത്തെ യുദ്ധസമാന സാഹചര്യത്തിൽ കോവിഡ് ഗവേഷണങ്ങൾ സാധാരണ നടപടി മാത്രമായി കാണരുതെന്ന് ആരോഗ്യമന്ത്രി ഡൽഹിയിൽ സി

ഐ ആർ ശാസ്ത്രജ്ഞരുമായി നടത്തിയ അവലോകന യോഗത്തിൽ ആവശ്യപ്പെട്ടു ദദർ ലോക്ഡൌണിൽ കേന്ദ്ര ഗവൺമെന്റ് പ്രഖ്യാപിച്ച ഇളവുകൾ സംബന്ധിച്ച മാർഗ്ഗ നിർദ്ദേശങ്ങൾ പല സംസ്ഥാനങ്ങളും പാലിക്കുന്നില്ലെന്ന് ആഭ്യന്തര സെക്രട്ടറി അജയ് ഭല്ല സംസ്ഥാന ചീഫ് സെക്രട്ടറിമാർക്കയച്ച കത്തിൽ അറിയിച്ചു അവശ്യ സാധനങ്ങളും മറ്റ് ഉല്പന്നങ്ങളുമായി പോകുന്ന വാഹനങ്ങൾ പലയിടത്തും പൊലീസ് പിടിച്ചുവെയ്ക്കുന്നത് ഇവയുടെ ലഭ്യതയെ ദോഷകരമായി ബാധിക്കുന്നുണ്ടെന്ന് അദ്ദേഹം വിലയിരുത്തി പലയിടത്തും ഇത്തരം വാഹനങ്ങൾക്ക് പാസ് നൽകുന്നതിൽ വീഴ്ച കണ്ടെത്തിയിട്ടുണ്ടെന്നും അജയ് ഭല്ല പറഞ്ഞു ദേദ കുടിയേറ്റ തൊഴിലാളികളുടെ ക്ഷേമം സംബന്ധിച്ച സുപ്രീംകോടതി നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കണമെന്ന് ആഭ്യന്തര മന്ത്രാലയം സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും നിർദ്ദേശം നൽകി ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്ന തൊഴിലാളികൾക്ക് ഭക്ഷണത്തിനും കുടിവെള്ളത്തിനും വൈദ്യസഹായത്തിനും ആവശ്യമായ നടപടികൾ കൃത്യമായി പാലിക്കണം രുദ കോവിഡ് രോഗം മാറിയ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ബോറിസ് ജോൺസൺ ഉടൻ തന്നെ ചുമതലയേറ്റെടുക്കില്ലെന്ന് ഔദ്യോഗിക കേന്ദ്രങ്ങൾ അറിയിച്ചു വിദേശ സെക്രട്ടറി ഡൊമിനിക് റാബ് തന്നെ കുറച്ചുദിവസംകൂടി പ്രധാനമന്ത്രിയുടെ ചുമതലയിൽ തുടരും

മത്സ്യം കേടാകാതിരിക്കാൻ രാസവസ്തുക്കൾ ഉപയോഗിക്കരുതെന്ന് കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്

രാവിലെ എട്ടിന് കോഴിക്കോട് നിന്ന് പുറപ്പെടുന്ന ട്രെയിൻ വൈകിട്ട് ആറിന് തിരുവനന്തപുരത്ത് എത്തും തിരുവനന്തപുരത്തുനിന്ന് രാവിലെ എട്ടിന് പുറപ്പെടുന്ന ട്രെയിൻ വൈകിട്ട് ആറിനാണ് കോഴിക്കോട്ടെത്തുക രുര മലബാർ ഹോസ്പിറ്റൽ ചെയർ പേഴ്സണും സാമൂഹിക പ്രവർത്തകയുമായ ഡോ

എ കോഴിക്കോട് ബ്രാഞ്ച് പ്രസിഡന്റ് സെക്രട്ടറി വനിതാ വിഭാഗം ദേശീയ സമിതി അംഗം എന്നീ നിലകളിൽ പ്രവർത്തിച്ചിരുന്നു സംസ്ഥാന ഗവൺമെന്റ് വനിതാ രത്നം പുരസ്കാരം ഐ

സംസ്കാരം വൈകിട്ട് നാലിന് വെസ്റ്റ്ഹിൽ ശ്മശാനത്തിൽ നടത്തും

ആക്രമണത്തിൽ മൂന്ന് പൊലീസുകാർക്ക് പരിക്കേറ്റു